കെ ശൈലജ

രോഗം സ്ഥിരീകരിച്ചത് രണ്ടുപേർക്ക്

വാർത്തകൾ വിശദമായി സംസ്ഥാനത്ത് ലോക്ക്ഡൌണുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് പ്രഖ്യാപിച്ച ഇളവുകൾ പച്ച ഓറഞ്ച് ബി മേഖലകളിലെ ഏഴ് ജില്ലകളിൽ നിലവിൽ വന്നു

മെഡിക്കൽ ആവശ്യങ്ങൾക്കും മാർഗ്ഗ നിർദേശങ്ങളിൽ വ്യക്തമാക്കിയ കാര്യങ്ങൾക്ക് മാത്രമേ ജില്ലാ അതിർത്തിയും സംസ്ഥാന അതിർത്തിയും കടന്ന് യാത്ര അനുവദിക്കൂ എന്നും ഡി ജി

വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സിനിമാ തിയേറ്ററുകൾ ഷോപ്പിങ് കേന്ദ്രങ്ങൾ പാർക്കുകൾ ബാറുകൾ മുതലായവ അനുവദിക്കില്ല ജനങ്ങൾ കൂട്ടുംകൂടുന്ന എല്ലാതരം പരിപാടികളും നിരോധിച്ചിട്ടുണ്ട്

ആരോഗ്യ മേഖല കൃഷി മത്സ്യബന്ധനം പ്ലാന്റേഷൻ മൃഗസംരക്ഷണം സാമ്പത്തിക മേഖല സാമൂഹ്യ മേഖലഓൺലൈൻ വിദ്യാഭ്യാസ സമ്പ്രദായം തൊഴിലുറപ്പ് പദ്ധതികൾ എന്നിവ അനുവദിക്കും അവശ്യസാധനങ്ങളുടെ വിതരണം സ്വകാര്യ വാണിജ്യ സ്ഥാപനങ്ങൾ ഗവൺമെന്റ് സ്വകാര്യ മേഖലകളിലെ വ്യവസായ സ്ഥാപനങ്ങൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കും അനുമതി നൽകിയിട്ടുണ്ടെന്നും ഡി

രജിസ്ട്രേഷൻ നമ്പർ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് അക്കങ്ങളിൽ അവസാനിക്കുന്ന വാഹനങ്ങൾക്ക് തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിലും പൂജ്യം രണ്ട് നാല് ആറ് എട്ട് അക്കങ്ങളിൽ അവസാനിക്കുന്ന നമ്പറുള്ള വാഹനങ്ങൾക്ക് ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിലും യാത്രാ അനുമതി നൽകും

ചുവപ്പ് മേഖലയായി പ്രഖ്യാപിച്ച കാസർകോട് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ നിലവിലെ ലോക്ക്ഡൌൺ മാറ്റമില്ലാതെ തുടരുമെന്നും ഡിജിപി അറിയിച്ചു

രോഗത്തിന്റെ വ്യാപനം വർധിക്കുന്നതിനനുസരിച്ച് ദിവസേന ഹോട്ട്സ്പോട്ടുകൾ പുനർനിർണയിക്കുമെന്നും ആഴ്ചതോറും നടത്തുന്ന ഡാറ്റാവിശകലനത്തിന് ശേഷമായിരിക്കും ഹോട്ട്സ്പോട്ടിൽ നിന്ന് ഒരു പ്രദേശത്തെ ഒഴിവാക്കുകയെന്നും മന്ത്രി വ്യക്തമാക്കി

എന്നാൽ നേരത്തെ നൽകിയ ഉത്തരവ് അനുസരിച്ച് ഗർഭിണികൾ ചികിത്സക്കായെത്തുന്നവർ ബന്ധുക്കളുടെ മരണ ചടങ്ങിൽ പങ്കെടുക്കാനെത്തുന്നവർ എന്നിവരെ അതിർത്തി കടക്കാൻ അനുവദിക്കുമെന്നും ചീഫ് സെക്രട്ടറി പറഞ്ഞു

ഡോക്ടർമാർ നഴ്സുമാർ മറ്റ് ആരോഗ്യ പ്രവർത്തകർ ഡ്യൂട്ടിക്കെത്തുന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ എന്നിവർക്ക് സ്വന്തം വാഹനത്തിൽ താമസിക്കുന്ന ജില്ലയിൽ നിന്ന് ജോലി ചെയ്യുന്ന തൊട്ടടുത്ത ജില്ലയിലേക്കും തിരിച്ചും മാത്രമായിരിക്കും യാത്രാനുമതിയെന്നും ചീഫ് സെക്രട്ടറി പറഞ്ഞു ജോലിക്ക് പോകുന്നവരെല്ലാം തിരിച്ചറിയൽ കാർഡ് കരുതണം ഡ്യൂട്ടിയിലില്ലാത്തവർ ഈ ആനുകൂല്യം ദുരുപയോഗം ചെയ്താൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു

ഹോട്ട്സ്പോട്ട് ഒഴികെ സ്ഥലങ്ങളിൽ ശാരീരിക അകലം പാലിച്ച് പ്രഭാത സായാഹ്ന നടത്തം അനുവദിക്കുമെന്ന് ചീഫ് സെക്രട്ടറി പറഞ്ഞു

അണുവിമുക്തമാക്കിയതിന് ശേഷം നാളെ മുതൽ കടകൾ തുറന്നു പ്രവർത്തിക്കും

കാസർകോട് ജില്ലയിലെ എട്ട് പേരുടേയും കണ്ണൂർ ജില്ലയിലെ മൂന്ന് പേരുടേയും മലപ്പുറം തൃശൂർ ജില്ലകളിലെ ഓരോരുത്തരുടേയും പരിശോധനാഫലമാണ് നെഗറ്റീവായതെന്ന് മന്ത്രി കെ

ഡൽഹിയിൽ രോഗികളുടെ എണ്ണം രണ്ടായിരം കവിഞ്ഞു

മഞ്ഞ കാർഡുടമകൾക്ക് ഇന്നും നാളെയും പിങ്ക് കാർഡ് ഉടമകൾക്ക് മറ്റന്നാൾ മുതലും അരി നൽകും ഇതോടൊപ്പം സംസ്ഥാന ഗവൺമെന്റിന്റെ പലവ്യഞ്ജന കിറ്റും അവർക്ക് വിതരണം ചെയ്യും

ധനകാര്യ വകുപ്പിന് കീഴിലെ കൺട്രോളർ ജനറൽ ഓഫ് അക്കൌണ്ട്സ് കാര്യാലയം പൊതു ധനകാര്യ നിർവഹണ സംവിധാനത്തിലൂടെയാണ് പണം കൈമാറിയത് രുമ ഓഖയിൽ നിന്ന് തിരുവന്തപുരത്തേക്കും തിരിച്ചും റെയിൽവേ പ്രത്യേക പാർസൽ ട്രെയിൻ ഓടിക്കും

രുദ ലോക്ഡൌൺ കാലത്ത് അത്യാവശ്യമല്ലാത്ത വസ്തുക്കളുടെ വിതരണം നിരോധിച്ചിട്ടുണ്ടെങ്കിലും ഇ കൊമേഴ്സ് കമ്പനികൾക്ക് അവശ്യവസ്തുക്കളുടെ വിതരണം നടത്താമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു ഇ കൊമേഴ്സ് ഉൾപ്പെടെ അവശ്യവസ്തുക്കളുടെ മുഴുവൻ വിതരണ ശൃംഖലയുടെയും സുഗമമായ നീക്കം ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാനങ്ങളുമായും കേന്ദ്ര ഭരണപ്രദേശങ്ങളുമായും ആശയവിനിമയം നടത്തി രും വിമാന ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നത് നിർത്തിവെയ്ക്കാൻ വിമാന കമ്പനികൾക്ക് സിവിൽ ഏവിയേഷൻ ഡയറക്ടർ ജനറൽ നിർദ്ദേശം നൽകി മെയ് നാലുമുതൽ ആഭ്യന്തര അന്താരാഷ്ട്ര വിമാന സർവ്വീസുകൾ പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച് ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ലെന്ന് അദ്ദേഹം അറിയിച്ചു